പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും

എസ് എൽ ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ് സി ഗോവയെ നേരിടുന്നു

കൊച്ചിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും ഇതിനോട് അനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് കൊച്ചി നഗരത്തിൽ ഒരുക്കിയിട്ടുള്ളത്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 കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

ആറായിര്ക് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പി ഡി

കൊച്ചി നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനും യാത്ര ചെലവ് കുറയ്ക്കാനും റോ റോ സഹായിക്കുമെന്നാണ് കരുതുന്നത് ഇതിനു പുറമെ കൊച്ചി തുറമുഖത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ സാഗരിക യും പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും

കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ മറൈൻ എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനവും കൊച്ചി തുറമുഖത്ത് ദക്ഷിണ കൽക്കരി ബെർത്തിന്റെ പുനർനിർമാണ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി ധർമേന്ദ്ര പ്രധാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ പ്രധാനമന്ത്രിയെ അനുഗമിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചെന്നൈ മെട്രോ റയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം അദ്ദേഹം നിർവ്വഹിക്കും

നിരവധി പദ്ധതികളുടെ ശിലാസ്ഥാപന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും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

മേഖലയിൽ ഏഴു മാസം കൊണ്ട് വൈദ്യുത എത്തിക്കാനായി

മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ്സുശീൽ ചന്ദ്ര രാജീവ് കുമാർ എന്നിവരും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട് നാളെ വീണ്ടും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ചർച്ച നടത്തും വൈകിട്ട് ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയശേഷം കമ്മീഷൻ മാധ്യമങ്ങളോടും സംസാരിക്കും

സി പി നേതാവുമായ മാണി സി കാപ്പൻ പ്രത്രിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്ചര്യകൃപ്കേരള യാത്ര നാളെ കോട്ടയത്തെത്തുമ്പോൾ ഔദ്യോഗ്ലീക്മായി യു ഡി എഫിൽ ചേരുമെന്നും പാലായിൽ യു

ഡി എഫ് ഘടക കക്ഷി സ്ഥാനാർത്ഥിയായിട്ടായിരിക്കൂ് മൽസരിക്കുകയെന്ന് അദ്ദേഹം വ്യക്തമാക്കി

പുതിയ ലോകം പുതിയ റേഡിയോ എന്നതാണ് ഈ വർഷത്തെ ലോക റേഡിയോ ദിനത്തിന്റെ പ്രമേയം

വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു

ജോലിക്കെത്തുന്ന വനിതകൾക്ക് സുരക്ഷിതമായ താമസസൌകരൃം ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്

ആദ്യ സെക്ഷനിലെ മോശം തുടക്കത്തിൽ നിസ്ന്റണ്ട് ഇന്ത്യ ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിയത്

അജിങ്ക്യ രഹാനെയുടെ അർദ്ധ സെഞ്ചറിയും ഇന്ത്യൻ സ്കോർ ഉയർത്താൻ സഹായകമായി

എൽ ഫുട്ബോളിൽ ചെന്നൈ എഫ്

തിങ്കളാഴ്ച്ച് മുതൽ പുതിയ കോച്ചുകളോടു കൂടിയ അഗർത്തല പ്രത്യേക രാജ്ജ്യാനി ട്രെയിൻ ഓടി തുടങ്ങും തേജസ് സ്ലീപർ കോച്ചുകളോടു ് കൂടിയ രാജധാനി എക്സ്പ്രസ് രാജ്യ തലസ്ഥാനത്തേക്കുള്ള യാത്ര കൂടുതൽ മികച്ചതാക്കുമെന്ന് മന്ത്രാലയം പറഞ്ഞു